ജമ്മുകാശ്മീരിലെ നിയോജകമണ്ഡലങ്ങളുടെ അതിർത്തി പുനർ നിർണ്ണയം നടത്തുന്നു എന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര ഗവൺമെന്റ്

കാലാവസ്ഥ വൃതിയാനത്തെ ്ന്യേരിടുന്നതിനും ഭൂമിയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്ണെന്ന് രാ്ഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

നിലവിൽ ആശങ്കപ്പെടേ സാഹചര്യമില്ലെന്ന് സംസ്ഥാന ആരോഗൃമന്ത്രി കെ കെ ശൈലജ

വിശുദ്ധ റംസാൻ മാസത്തിന് പരിസമാപ്തി കുറിച്ചു ് രാജ്യമെമ്പാടും ഇന്ന് ഈദ് ഉൽ ഫിത്തർ കൊ ആഘോഷിക്കുന്നു

ാം മത്സരത്തിൽ ബംഗ്ലാദേശ് ന്യൂസിലാന്റുമായി ര ഏറ്റുമുട്ടും

മാന്യമ വാർത്തകൾ കേന്ദ്ര ഗവൺമെന്റ് ജമ്മുകാശ്മീരിലെ നിയോജകമണ്ഡല പുനർനിർണയത്തെ കുറിച്ച് ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു ഒരു ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബയുമായും മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും വിഷയം ചർച്ച ചെയ്തു എന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്

അടുത്തമാസം ഒന്നിന് ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും ആഭ്യന്തര മന്ത്രിയെ ധരിപ്പിച്ചിട്ടു ് കൂടാതെ എണ്ണ ഇറക്കുമതി വിഷയം ചർച്ച ചെയ്യുന്നതിനായി ശ്രീ ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം നടന്നു യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പങ്കെടുത്തു

പരിപ്രഥിതി സംരക്ഷണത്തിന് ആഗോളതലത്തിൽ ബോധവത്ക്കുത്രണ്ടു അനിവാര്യമാണെന്ന് ആഹ്വാനം ചെയ്തുകൊ ാണ് ഇത്തവ്ണത്തെ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് വോയിസ് പരിസ്ഥിതി സൌഹൃദമായ വാസസ്ഥലം നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കുന്നതിനും കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

പരിസ്ഥിതിയുമായി ഇഴുകിച്ചേർന്നുള്ള ജീവിതം മികച്ച ഭാവിയിലേക്ക് നമ്മെ നയിക്കുമെന്ന് ടിറ്ററിലെ ദിനാചരണ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പൊതുജന പ്രചാരണ പരിപാടിയായ സെൽഫി വിത്ത സാപ്ലിങ്ങിന് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഇന്നലെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു വൃക്ഷത്തൈകൾ നടുന്നതിനൊപ്പം സെൽഫി എടുത്ത് അയയ്ക്കുന്ന ഈ പരിപാടിയിൽ എല്ലാവരും പങ്കു ചേരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു

വൃക്ഷത്തൈകൾ നടുന്നതിനോടൊപ്പം മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കണമെന്ന് മന്ത്രി ബാബുൽ സുപ്രിയോ ആഹ്വാനം ചെയ്തു

നദികളുടെ പുനരുദ്ധാരണവും ജലസംരക്ഷണവും ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമായി കാണണമെന്ന് ശ്രീ ശെഖാവത് ആഹ്വാനം ചെയ്തു

ഭൂമി ഭകൈമാറാനുള്ള ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി എസ് യദിയൂരപ്പ പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് എച്ച് കെ പാട്ടീലും ഗവൺമെന്റ് തീരുമാനത്തിൽ അസന്തുഷ്ടി മുഖ്യമന്ത്രി കുമാരസ്വാമിക്ക് നൽകിയ തീരുമാനം കത്തിൽ പുനപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ സംസ്ഥാന വൃവസായ മന്ത്രി കെ ജെ ജോർജ്ജ് എച്ച് കെ പാട്ടീലിന്റെ വാദങ്ങൾതള്ളി ജിൻഡാൽ കമ്പന്റീ യ്ാതൊരു കുടിശ്ശികയും വരുത്തിയിട്ടില്ലെന്നും പാട്ടീലിന്റെ

ആഗോള സാമ്പത്തിക റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്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 വിലക്കയറ്റ നിരക്കാകട്ടെ പ്രതീക്ഷിച്ചതിലും താഴെയാണ്

ഒരാൾക്ക് മാത്രമാണ് നിപ്പ ഇതുവരെ സ്ഥിരീകരിച്ചതെന്നും രോഗിയുടെ നില തൃപ്തികരമെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു അഞ്ച് പേർ നിരീക്ഷണത്തിലു ് ഇവരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് പൂനെയിലേക്ക് അയച്ചതായും നിലവിൽ ആശങ്കപ്പെടേ സാഹചര്യമില്ലെന്നും മുന്തി ്പറഞ്ഞു വൈറസിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് ഓസ്ട്ട്രേലിയയിൽ നിന്ന് സംസ്ഥാനത്ത് എത്തിച്ചിട്ടു ്

നിപ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയിലെ പുരോഗതിയും നിപയിലെ ആശങ്ക കുറക്കുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു നിപ്പാ നിയന്ത്രണ പ്രവർത്തനങ്ങൽ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നു ് നിപ വൈറസിനെതിരെ ആശങ്ക വേ വെ ങ്കിലും ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർദ്ദേശിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിപ രോഗബാധയെ കുറിച്ച് വ്യാജപ്രചരണം നടത്തിയ മൂന്ന് പേർക്കെതിരെ എറണാകുളം പോലീസ് കേസെടുത്തു

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് വോയിസ് കേന്ദ്ര സ്ഥിതി വിവര പ്രവർത്തി നിർവ്വഹണ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് സാമ്പത്തിക സെൻസസിന്റെ പ്രാരംഭ നടപടികൾ പുരോഗമിക്കുന്നത് സംസ്ഥാനങ്ങളിൽ എന്യുമെറേറ്റർമാരുടെ തിരഞ്ഞെടുപ്പും പരിശീലനവും തുടങ്ങിയിട്ടു ് രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളെക്കുറിച്ചുളള വിവരങ്ങ്ളാണ് സാമ്പത്തിക സെൻസസിൽ ശേഖരിക്കുന്നത്

സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തോടൊപ്പം കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യ വകുപ്പും സാമ്പത്തിക സെൻസസ് നടപടികളിൽ ഭാഗഭാക്കാവും

ആഘോഷത്തോട് അനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഇൌദ് നമസ്കാരവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ഈദ് ആശംസകൾ നേർന്നു ത്യാഗം സാഹോദര്യം ദയ എന്നിവയിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്നതാണ് ഈദ് ഉൽ ഫിത്തറെന്ന് ശ്രീ

ഈ ദിനത്തിൽ നമ്മുടെ സംസ്ക്കാരത്തിന്റെ പ്രത്യേകത്ക്ളായ ശാശ്വത മൂല്യങ്ങൾക്കായി വീ വും ആത്മസ്മർപ്പണം ചെയ്യണമെന്നും രാഷ്ട്രപതി പറഞ്ഞു പീരുസ്പരം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവിയ്ക്കലാണ് ഇൌദ് ഉൽ ഫിത്തറിന്റെ കാതലെന്ന് ഉപരാഷ്ട്രഫ്തി സന്ദേശത്തിൽ പറഞ്ഞു

ആദ്യ ര ് മത്സരങ്ങളും പരാജയപ്പെട്ട ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്നത്തെ മത്സരം നിർണ്ണായകമാണ്

പുൽവാമയിലെ നർബാൽ കാക്കാപോറാ മേഖലയിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയത് ആക്രമിക്കായി മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്

ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരരിൽ അഞ്ച് പേരെ സുരക്ഷാ സേന പിന്തുടർന്ന് വധിച്ചു

നാളെ ആരംഭിക്കുന്ന ഇരുപത്തി മൂന്നാമത് സെന്റ് പീറ്റേഴ്സ് ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കും